കർഷക സമരം ഒത്തുതീർക്കാൻ ബുധനാഴ്ച വീണ്ടും ചർച്ച സാധ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ

ഭരണഘടനാ ശില്പി ബി

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കർഷകർ ഉയർത്തിയ ആവശ്യങ്ങളിൽ സാധ്യമായ എല്ലാ പരിഹാരമാർഗ്ഗങ്ങളും ഭരണകൂടം സ്വീകരിച്ചതായും കർഷക സമർം എത്രയും വേഗം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ അഭിപ്രായപ്പെട്ടു

സമരത്തിൽ ഉടനീളം സമാധാനം പാലിക്കുന്ന കർഷക യൂണിയനുകൾക്ക് അദ്ദേഹ് ്ന്ദിയും അറിയിച്ചു

താജ്മഹൽ ആഗ്ര ഫോർട്ട് സികന്ദ്ര തുടങ്ങിയ പ്രധാന വിനോദ സഞ്ചാരകേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി ഇത് ബന്ധിപ്പിക്കുന്നു

ഇത് തുടർച്ചയായ ഒൻപതാം ദിവസമാണ് പ്രതിദിന രോഗമുക്തരുടെ എണ്ണം രോഗർ ് സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ ആകുന്നത്

ഫ്രാൻസ് ഇറ്റലി ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് അമേരിക്ക കഴിഞ്ഞാൽ രോഗബാധയിൽ മുന്നിട്ടുനിൽക്കുന്നത്

പ്രതിരോധ മരുന്ന് ഇന്തൃയിലേക്ക് ഇറക്കുമതി ചെയ്യാനും ഇവിടെ വില്പന നടത്താനുമുള്ള അനുമതിയ്ക്കായാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയെ കമ്പനി സമീപിച്ചിരിക്കുന്നത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്റ് ് ഉപ്രാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നതുടങ്ങിയ പ്രമുഖ നേതാക്കൾ അംബേദ്കർക്ക് ആദരപ്പ് അർപ്പിച്ചു

ചെന്നൈയിലെ രാജ് ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങുകളിൽ തമിഴ്നാട് ഗവർണർ ബൻവാരി ലാൽ പുരോഹിതിനോപ്പമാണ് ഉപരാഷ്ട്രപതി പങ്കെടുത്തത്

പരസ്യപ്രചാരണം അവസാനിച്ചു

തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ്

ബൂത്തുകൾ നാളെ അണുവി മുക്തമാക്കും

അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ എട്ട് കമ്പനി സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്

കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ഭവനിൽവച്ച് എൻ

സി കേഡറ്റുകളിൽ നിന്നും പതാക്യവാങ്ങി ദിനാചരണത്തിന് തുടക്കമിട്ടു പതാകകൾ വാങ്ങി ഈ സംര്യഭ്യാത്ത വിജയിപ്പിക്കണമെന്ന് ഗവർണർ പറഞ്ഞു

അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ശിഖർ ധവാനാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഗോവ എഫ്

ഇന്ന് ആദ്യം നടന്ന മുംബൈ സിറ്റിയും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ മുംബൈയ്ക്ക് ജയം ഒഡീഷയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്

പാക് അധീന കാശ്മീരിലെ അബ്ബാസ് പൂർ സ്വദേശികളായ പെൺകുട്ടികളെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പൊലീസിന് കൈമാറി

വാണിജ്യ വ്യവസായ മന്ത്രി പിയുഷ് ഗോയാലും ആയുഷിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ശ്രീപദ്നായിക്കും തമ്മിൽ ് നിട്ടത്തിയ ആയുഷ് വ്യവസായ അവലോകന യോഗത്തിലൂട്ണ്ട് ് തീരുമാനം ഉത്പന്നങ്ങളുടെ കയറ്റുമതി വർധിപ്പിക്കുന്നതിനാ്യി വിലയിലും ഗുണമേന്മയിലും പര്യാപ്തത കൈവരിക്കാൻ ആയുഷ് ശൃംഖല ഒന്നാകെ പ്രവർത്തിക്കാനും തീരുമുനമായി